വാണിജ്യ ഭവന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തറക്കല്ലിടും

ചർച്ച ചെയ്യാൻ ഗവർണർ സർവ്വക്ക്ഷി യോഗം വിളിച്ചു

ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ആവർത്തിച്ച് വിദേശകാരൃമന്ത്രി സൂഷമാ സ്വരാജ്

പ്രതിബദ്ധത കാട്ടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഫിഫ ലോകകപ്പിൽ അർജന്റിനയ്ക്കുമേൽ ക്രൊയേഷ്യയ്ക്ക് മൂന്ന് ഗോൾ ജയം ഫ്രാൻസ് പെറുവിനെ ഒരു ഗോളിന് തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് ഡെന്മാർക്ക് ഓസ്ട്രേലിയ മത്സരം സമനിലയിൽ

പേപ്പർ രഹിത ഓഫീസായി പ്രവർത്തനമാരംഭിക്കുന്ന കെട്ടിടത്തിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്

ഡി പി ബി ജെ പി ബന്ധം തകർന്നതിനെ തുടർന്ന് മെഹ്ബൂബ മുഫ്തി ഗവൺമെന്റ് നിലംപൊത്തിയ സാഹചര്യത്തിലാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച സംസ്ഥാനത്ത് ഗവർണർ ഭരണം ഏർപ്പെടുത്തിയത് തുടർന്ന് ഗവർണർ നിയമസഭയും മരവിപ്പിച്ചിരുന്നു

ജി കമാന്റോകളെ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം തീരുമാനിച്ചു ഭീകരപ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നൂറോളം കമാൻഡോകളെ ഘട്ടംഘട്ടമായി വിന്യസിക്കാനാണ് മന്ത്രാലയ തീരുമാനം

ജി യുടെ ഹൌസ് ഇന്റർവെൻഷൻ ടീമിൽ ഉൾപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഭീകരവിരുദ്ധ സൈനിക നീക്കങ്ങളിൽ വിന്യസിക്കുക എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

തദ്ദേശീയമായ പദ്ധതികളിലെ ജനപങ്കാളിത്തം അതിന്റെ നടത്തിപ്പിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുമെന്നും ഉപരാഷട്രപതി പറഞ്ഞു പുനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന്റു നിർവ്വഹിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാർട്ട്സിറ്റി പദ്ധതിയുടെ പട്ടികയിൽ ഇടംനേടിയ കോർപ്പ്റേഷ്ഠനാണ് പുനെ മുനിസിപ്പൽ കോർപ്പറേഷൻ

കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇതിന് സഹായമാകുമെന്നും ശ്രീ ഗോയൽ അവകാശപ്പെട്ടു ബക്കിംഗ്ഹാം ഷെയറിലെ ലാത്തിമറിൽ നടക്കുന്ന ഇന്ത്യ യു കെ നേതൃത്വ സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ആഗോള നിക്ഷേപകരെ ആകർഷിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയതായും ശ്രീ ഗോയൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എടുത്തുപറഞ്ഞു

ഐ എ അറസ്റ്റു ചെയ്തു മുസാഫർപൂരിൽ നക്സലുകളിൽ നിന്നും ആയുധങ്ങളും പണവും കണ്ടെത്തിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിനിടെയാണ് ഇയാൾ പിടിയിലായത്

ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം നാലായി

മൂല്യങ്ങളും തത്വങ്ങളും പങ്കിടുന്നതിൽ ഇന്ത്യയും യൂറോപ്യൻ രാജൃങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നും അവർ അറിയിച്ചു

ഇതോടെ ഇരുരാജ്യങ്ങളിലും ഗണ്യമായ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ഒക്ടോബറിൽ ഏഷ്യ യൂറോപ് ഉച്ചകോടി നടക്കാനിരിക്കുകയാണെന്നും ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു നയിക്കുമെന്നും ശ്രീമതി സുഷമാസ്വരാജ് അറിയിച്ചു ചതൂർരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് ശ്രീമതി സുഷമ സ്വരാജ് ബ്രസ്സൽസിൽ എത്തിയത്

രണ്ടംഗ വിദഗ്ദ്ധ സമിതിയേയും ഇതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്

ക്യൂബയിൽ എത്തിയ രാഷ്ട്രപതി ആദ്യം സാന്റ ഇഫ്ജീനിയ സെമിത്തേരി സന്ദർശിച്ച് ഇതിഹാസ കവി ജോസ് മാർത്തിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു

ക്യൂബൻ നേതാവ് ഫിഡൽ കാസ്ട്രോയുടെ സ്മാരകത്തിലും രാഷ്ട്രപതി ആദരാഞ്ജലി അർപ്പിച്ചു തുടർന്ന് രാഷ്ട്രപതി ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിലേക്ക് തിരിച്ചു

ഗവൺമെന്റ് സ്കൂൾ അധ്യാപകർക്ക് ഇനി മുതൽ അവാർഡിനുള്ള അപേക്ഷകൾ നേരിട്ട് അയയ്ക്കാം മുൻപ് അതതു സംസ്ഥാന ഗവൺമെന്റുകളായിരുന്നു പുരസ്ക്കാരത്തിന് അപേക്ഷകൾ നൽകിയിരുന്നത്

അപേക്ഷകൾ പരിശോധിച്ച് സ്വതന്ത ദേശീയ ജൂറി പുരസ്ക്കാരങ്ങൾ തീരുമാനിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു

ടി

്ട്ടുത്തകാലത്ത് വിവിധ സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന എ ടി എം തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് റിസർപ്പ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശ്ശിക് ഇതനുസരിച്ച് അതത് ബാങ്കുകൾ അവരുടെ എ ടി എം കളുടെ സുരുക്ഷാ നടപടികൾ ആഗസ്റ്റ് മാസത്തോടെ നടപ്പാക്കണമെന്നും അടുത്തവർഷം ജൂണോടെ ഇവയുടെ സുരക്ഷ കുറ്റമറ്റ രീതിയിൽ പ്രാവർത്തികമാക്കണമെന്നുമാണ് നിർദ്ദേശം

ടി എം കളിലെ സുരക്ഷാ വീഴ്ച വഴി ഉപഭോക്താക്കളുടെ താത്പര്യം ഹനിക്കപ്പെടുന്നതായും ഇതിലൂടെ ബാങ്കുകളുടെ സൽപ്പേരിനു തന്നെ കളങ്കം വന്നതായും റിസർപ്പ് ബാങ്കിന്റെ അറിയിപ്പിൽ പറയുന്നു

ടി എം സുരക്ഷയ്ക്കായി ബാങ്കുകൾ സ്വീകരിക്കുന്ന നടപടികളുടെ റിപ്പോർട്ട് അടുത്ത മാസത്തോടെ സമർപ്പിക്കാനും അതത് ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്

എന്നാൽ കേരളത്തിന്റേതെന്ന് അവകാശപ്പെടുന്ന ചില ബാങ്കുകൾ ഒരു സഹായവും ചെയ്തില്ല

പലിശ ഈടാക്കൽ ബന്ധം മാത്രമല്ല ഗവൺമെന്റും ബാങ്കുകളും തമ്മിലുള്ളതെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു

മറ്റൊരു മത്സരത്തിൽ ഫ്രാൻസ് പെറുവിനെ ഒരു ഗോളിന് തോൽപിച്ച് പ്രീ കാർട്ടറിലേക്ക് കടന്നു അർജന്റീന ക്രൊയേഷ്യ മത്സരത്തിൽ അർജന്റീനയ്ക്ക് മേൽ ക്രൊയേഷ്യ മൂന്നൂ ഗോൾ ജയം നേടി

റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ യാഥാസ്ഥിതികരും ഉല്പതിഷ്ണുക്കളും തമ്മിൽ തന്നെ ധാരണയുണ്ടാകാത്ത സാഹചര്യത്തിൽ വോട്ടെടുപ്പിന്റെ ഫലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് നിയമവിരുദ്ധമായി കുടിയേറുന്ന കുടുംബങ്ങളിലെ മാതാപിതാക്കളെയും കുട്ടികളെയും വേർപെടുത്തി തടവിലാക്കാൻ പാടില്ലെന്നതാണ് പുതിയ നിയമം